മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടു പ്രളയത്തിൽ തകർന്ന സംസ്ഥാനത്തിന്റെ പുനർ നിർമ്മാണത്തിന് പ്രധാനമന്ത്രി പൂർണ്ണ പിന്തുണ അറിയിച്ചുവെന്ന് മുഖ്യമന്ത്രി പൊതുമേഖലാ ബാങ്കുകളുടെ ്കിട്ടാക്ക്ട്ടത്തിൽ നിന്ന് ഒരുലക്ഷത്തി എൺപതിനായിരം കോടി രൂപ നടപ്പുവർഷം തിരിച്ചുപിടിക്കുമെന്ന് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ആധാറിന്റെ ഭരണഘടനാ സാധുത ഉൾപ്പെടെ സുപ്രധാന കേസുകളിൽ സുപ്രീം കോടതി വിധി ഇന്ന് ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ അഫ്ഗാൻ മത്സരം സമനിലയിൽ പാകിസ്ഥാൻ

ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രളയത്തിൽ സംസ്ഥാന ത്തുണ്ടായ നാശനഷ്ടങ്ങളും ഇതുവരെ നടത്തിയ പുനരധിവാസ പ്രവർത്തനങ്ങളും സംസ്ഥാനത്തെ പുനർനിർമ്മിക്കുന്നതിനാവശ്യമായ സഹായ അഭ്യർ ത്ഥനയും അടങ്ങുന്ന നിവേദനം അദ്ദേഹം സമർപ്പിച്ചു

സംസ്ഥാനത്തെ മൊത്ത ആഭ്യന്തര ഉല്പാദനത്തിന്റെ മൂന്നു ശതമാനം വായ്പയെടുക്കാമെന്ന വ്യവസ്ഥ ഇളവ് ചെയ്ത് നാലര ശതമാനമാക്കണം

് ് ് ് ് ് സംസ്ഥാനത്തിന്റെ പുനർനിർമ്മാണത്തിന് പ്രധാനമന്ത്രി പൂർണ്ണ പിന്തുണ അറിയിച്ചതായി മുഖ്യമന്ത്രി പിന്നീട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രളയക്കെടുതി സംബന്ധിച്ച വിശദമായ നിവേദനം അടുത്തമാസം ആദ്യം ധനമന്ത്രാലയത്തിന് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു വിദേശസഹായം സ്വീകരിക്കുന്നതിന് തടസ്സമുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയെന്നും എന്നാൽ പ്രവാസികളിൽ നിന്ന് സഹായം സ്വീകരിക്കാമെന്ന് അദ്ദേഹം അറിയിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സാലറി ചലഞ്ചിൽ പങ്കെടുക്കാത്തവരോട് മക്കൾ ചോദിക്കുമെന്നും പിണറായി പറഞ്ഞു പ്രളയത്തെ തുടർന്ന് കേരളത്തിന് കേന്ദ്ര ഗവൺമെന്റും വിവിധ ഏജൻസികളും നൽകിയ സഹായ ത്തിന് പ്രധാനമന്ത്രിയോട് നന്ദി അറിയിച്ചെന്നും പിണറായി പറഞ്ഞു

എറണാകുളം ജില്ലയിലെ വെളിയനാട് സഹകരണസംഘത്തിന്റെ വട്ടപ്പാറ ബ്രാഞ്ച് ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

പ്രളയം ഏറെ ബാധിച്ച ബിന്മരം കോളനി ഏഴിക്കാട് കോളനി ആറന്മുള ചിറ്റാർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് സംഘം സന്ദർശനം നടത്തിയത് ജില്ലാ കലക്ടർ പി

ന്യൂഹുമായി കുടി കാഴ്ച നടത്തിയ സംഘം പ്രളയത്തെ മുന്നിൽ കണ്ട് ജില്ലയിൽ നടപ്പിലാക്കാവുന്ന വിവിധ പദ്ധതികൾ വിശദീകരിച്ചു ് ് ് ് ് ് ് പൊതുമേഖലാ ബാങ്കുകളുടെ കിട്ടാക്കടത്തിൽ നിന്ന് നടപ്പു സാമ്പത്തിക വർഷം ഒരുലക്ഷത്തി എൺപതിനായിരം കോടി രൂപ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി അറിയിച്ചു

ന്യൂഡൽഹിയിൽ പൊതുമേഖലാ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളുടെ വാർഷിക അവലോകനത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ കിട്ടാക്കടങ്ങളിൽ നിന്ന് ബാങ്കിംഗ് മേഖല കരകയറി തുടങ്ങിയെന്നും ധനമന്ത്രി അറിയിച്ചു

പട്ടികജാതി പട്ടികവർഗ്ഗ വിഭാഗങ്ങൾക്ക് സ്ഥാന ക്കയറ്റത്തിന് സംവരണം നിർബന്ധമല്ലെന്ന സുപ്രീം കോടതിയുടെ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന കേസിലും സുപ്രീം കോട്ടതി നട്പടി തൽസമയ സംപ്രേഷണം സംബന്ധിച്ച കേസിലും ഇന്ന് വിധിയുണ്ടാകും

പട്ടികജാതി പട്ടിക വർഗ്ഗ വിഭാഗങ്ങളുടെ സ്ഥാന ക്കയറ്റം സംബന്ധിച്ച കേസിലും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷ നായ അഞ്ചംഗ ഭരണ്ഘടനാ ബഞ്ച് വിധി പറയും മുതിർന്ന കോൺഗ്രസ് നേതാവ് പ്രഅഹമ്മദ് പട്ടേലിന്റെ രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഹർജിയിലും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗ ബഞ്ചിന്റെ വിധി ഇന്നുണ്ടാകും ജസ്റ്റിസ് രണ്ജൻ ഗൊഗോയിയെ അടുത്ത ചീഫ് ജസ്റ്റിസായി നിയമിച്ചത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിൽ സുപ്രീം കോടതി ഇന്ന് വാദം കേൾക്കും

ലുത്രയാണ് നിയമനം ചോദ്യം ചെയ്ത് കോടതിയെ സമീപിച്ചത്

മാണി ബജറ്റ് അവതരിപ്പിക്കുന്നതിനിടെയുണ്ടായ അക്രമവുമായി ബന്ധപ്പെട്ട കേസ് പിൻവലിക്കുന്നതിനെതിരെ പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല കോടതിയിൽ ഹർജി നൽകി എം പിമാർക്കും എം എൽ എമാർക്കു മെതിരായ കേസ് പരിഗണിക്കുന്ന പ്രത്യേക കോടതി യായ എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് അദ്ദേഹം ഹരജി നൽകിയത്

ശിവൻകുട്ടി ഇ

ജയരാജൻ കെ

ജലീൽ കെ

കുഞ്ഞുമുഹമ്മദ് സി

സദാശിവൻ എന്നിവർക്കെതിരെ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ച കേസിലെ നടപടികൾ അവസാനി പ്പിക്കാൻ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതി യിൽ അപേക്ഷ നൽകിയിരുന്നു

് ആൾക്കൂട്ട ആക്രമണങ്ങൾക്കും കൊലപാതക ങ്ങൾക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അറിയിച്ചു സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലം കൂടി പരിഗണിച്ചാണ് ആഭ്യന്തരവകുപ്പിന്റെ നടപടി

ഹരിയാന ഡൽഹി ഉത്തർപ്രദേശ് ഹിമാചൽ പ്രദേശ് ചണ്ഡീഗഡ് സംസ്ഥാനങ്ങൾ ധാരണയിലെത്തി ഇന്ധനവില വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ചണ്ഡീഗഡിൽ ചേർന്ന സംസ്ഥാന ധനമന്ത്രിമാരുടെ യോഗമാണ് ഈ തീരുമാനമെടുത്തത്

അസുഖത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് ഇന്നലെ വൈകിട്ടായിരുന്നു അന്ത്യം

പത്മകുമാർ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ അഫ്ഗാൻ മത്സരം സമനിലയിൽ കലാശിച്ചു

സൂപ്പർ ഫോറിലെ അവസാന മത്സരത്തിൽ പാകിസ്ഥാൻ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും

ശിവ മീറ്റ് റെക്കോർഡോടെ സ്വർണവും റെയിൽവേസിന്റെ ജെ പ്രീത് ഇതേ വിഭാഗത്തിൽ വെള്ളിയും നേടി വനിതകളുടെ ജാവ്ലിൻ ത്രോയിൽ റെയിൽവേസിന്റെ ഷർമിള കുമാരിക്കാണ് സ്വർണം റെയിൽവെസിന്റെ തന്നെ അന്നുറാണി വെള്ളിയും കെ

കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് വിമാനങ്ങൾ പകൽ സമയം നടത്തിയ പരീക്ഷണ പറക്കൽ വിജയകരമായിരുന്നു അതിനിടെ വിമാനത്താവളത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഉദ്യോഗസ്ഥർ നടത്തിയ വിദഗ്ദ്ധ പരിശോധന തൃപ്തികരമായിരുന്നുവെന്ന് ഇന്നലെ ചേർന്ന അവലോകനയോഗത്തെ അറിയിച്ചു ് ഇന്നും നാളെയും ശക്തമായ മഴയുണ്ടാകുമെന്ന കാലാവസ്ഥ കേന്ദ്രത്തിന്റ മുന്നറിയിപ്പിനെ തുടർന്ന് പാലക്കാട് ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി മഞ്ഞ അലർട്ട് തുടരും പോലീസ് റവന്യു വകുപ്പുകളുടെ കൺട്രോൾ റൂമുകൾ തുറക്കും ക്വാറികളുടെ പ്രവർത്തനം നിയന്ത്രിക്കും

ശബരിമല തീർഥാടനവുമായി ബന്ധപ്പെട്ട് പന്തളത്ത് പൂർത്തി യാക്കേണ്ട ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പന്തളത്തു ചേർന്ന അവലോകന യോഗത്തൽ അദ്ധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി പമ്പയിൽ ഉണ്ടായിരുന്ന മിക്ക അടിസ്ഥാന സൌകര്യ ങ്ങളും പ്രളയത്തിൽ നഷ്ടമായ സാഹചര്യത്തിൽ നിലക്കൽ ബേസ് ക്യാമ്പാക്കി നിലനിർത്തി തീർഥാടനം സുഗമമായി നടത്താനാണ് തീരുമാനമെന്നും അദ്ദേഹം അറിയിച്ചു പത്തനംതിട്ട മണിയാർ ഡാമിന്റെ ഉയർന്നിരിക്കുന്ന ഷട്ടറുകൾ പ്രവർത്തനക്ഷമമല്ലാത്തിനാൽ കൂടുതൽ ഉയർത്താൻ സാധ്യതയുണ്ടെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു മണിയാർ വടശ്ശേരിക്കര റാന്നി പ്രദേശങ്ങളിലും പമ്പാനദിയുടെ തീരങ്ങളിൽ താമസി ക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്നും കലക്ടർ പറഞ്ഞു

എ ഹെഡ് വർക്സ് ജലസംഭരണിയിലേക്ക് ഒഴുക്കി വിടുമെന്ന് ഇടുക്കി ജില്ലാ കലക്ടർ അറിയിച്ചു മൂന്നാർ മുതിരപ്പുഴ കല്ലാർകുട്ടി ലോവർ പെരിയാർ എന്നീ മേഖലകളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും കലക്ടർ പറഞ്ഞു

സ്ഥാപനങ്ങൾ പ്രഥമ പരിഗണന നൽകണമെന്ന് മന്ത്രി ടി

രാമകൃഷ്ണൻ പറഞ്ഞു

തള്ളുന്നവർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പും നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എ

പാഡിക്കോയുടെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലയിൽ നെല്ല് സംഭരണം ആരംഭിച്ചു

ജനവാസപ്രദേശങ്ങളിലെ കാട്ടാനശല്യം തടയാൻ കുങ്കിയാനയെ എത്തിച്ചു വയനാട് മുത്തങ്ങയിൽ നിന്നാണ് പരിശീലനം ലഭിച്ച സൂര്യ എന്ന കുങ്കിയാനയെ കൊണ്ടുവന്നത്

ചേർത്തല ചെത്തി കടപ്പുറത്ത് മത്സ്യ ബന്ധനത്തിനിടയിൽ വള്ളം മറിഞ്ഞ് ഒരാളെ കാണാതായി പൊള്ളേത്തൈ സ്വദേശി യേശുദാസിനെയാണ് കാണാതായത്

നടപ്പാക്കിയതിനാൽ കോഴിക്കോട് ജില്ലയിൽ എലിപ്പനിയും ഡങ്കിപ്പനിയും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയശ്രീ അറിയിച്ചു